രാജ്യത്ത് നിർത്തിവിച്ചിരുന്ന ട്രെയിൻ സർവ്വീസുകൾ നാളെ മുതൽ ഭാഗികമായി പ്പ്നരാരംഭിക്കും

കേന്ദ്രം പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി

ലക്ഷത്തിലേക്ക് ബ്രിട്ടണിൽ ലോക്ഡൌണിൽ ഉപാധികളോടെ ഇളവ്

ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനുശേഷം പ്രധാനമന്ത്രി ഇത് അഞ്ചാം തവണയാണ് മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത് കോവിഡ് പ്രതിരോധ നടപടികളും ലോക്ഡൌണിൽ ഇളവുകൾ വരുത്തുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും യോഗത്തിൽ ചർച്ചയായേക്കും അതിഥി തൊഴിലാളികളുടെ യാത്ര ഹോട്ട്സ്പോട്ടുകളിലെ കൊറോണ നിയന്ത്രണ നടപടികൾ തുടങ്ങിയവയും ചർച്ചാ വിഷയമാകും

കുടിയേറ്റ തൊഴിലാളികളുടെ മടങ്ങിവരവ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതേസമയം ലോക്ഡൌൺ വ്യവസ്ഥകളിൽ അനുവദിച്ച ഇളവുകൾ ഇന്നുമുതൽ നിലവിൽ വന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണ്ണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

ഗവൺമെന്റ് സ്വകാര്യ ലാബുകളിലായാണ് ഇത്രയും പരിശോധനകൾ നടന്നത്

സ്വകാര്യ ക്സിനിക്കുകളും നേഴ്സിങ്ങ് ഹോമുകളും തുറന്ന് പ്രവർത്തിക്കുവാൻ അനുവദിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്

ദിബ്രുഗർ അഗർത്തല സെക്കന്തരാബാദ് ബംഗളൂരു ചെന്നൈ ഹൌറ ബിലാസ്പൂർ പറ്റ്ന റാഞ്ചി ഭുവനേശ്വർ മഡ്ഗാവ് മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് ജമ്മു താവി എന്നിവിടങ്ങളിലേയ്ക്കാണ് മറ്റ് സർവ്വീസുകൾ

സി ടി

സുരക്ഷാപരിശോധനകൾക്ക് ശ്രേഷം ടീമാത്രമേ യാത്രക്കാരെ ട്രെയിനിൽ കയറാൻ അനുവദിക്കുകയുള്ളൂ മ്മാസ്കുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണം കൺഫോമ്സ്കായാത്രാ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ സ്റ്റേഷനുകളിൽ പ്രവേശിന്ട് അനുവദിക്കുകയുള്ളൂ

ചിക്കാഗോ മനില ലണ്ടൻ ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ എത്തുന്നത്

ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഐസൊലേഷനിൽ കഴിയുന്ന രോഗലക്ഷണങ്ങൾ ഉള്ളവരും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരും പാലിക്കേണ്ട കാര്യങ്ങളാണ് മാർഗ്ഗനിർദ്ദേശത്തിൽ വിശദീകരിക്കുന്നത്

നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമേയുള്ളൂവെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ച കേസാവണം ഇത്

ഇതര സംസ്ഥാനത്തുനിന്നും മടങ്ങിവരുന്ന എല്ലാവരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും രോഗലക്ഷണമുള്ളവരെ തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി കോവിഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വേണം

റഷ്യയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തിലധികമായി